എം മീ ടു ലൈംഗിക ആരോപണത്തെപ്പറ്റി പിന്നീട് പ്രസ്താവന നടത്താമെന്ന് കേന്ദ്രസഹമന്ത്രി എം ജെ അക്ബർ ശബരിമല വിഷയത്തിൽ തന്ത്രി കൂടുംബവുമായും പന്തളം കൊട്ടാരവുമായും മറ്റന്നാൾ ചർച്ച നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്

ശബരിമലയെ തകർക്കാൻ മുഖ്യമന്ത്രിക്കോ സി

എമ്മി നോ കഴിയില്ലെന്ന് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള

പി ജയരാജൻ

മീ ടു ലൈംഗിക ആരോപണം നേരിടുന്ന വിദേശ കാര്യ സഹമന്ത്രി എം

ആരോപണങ്ങളെപറ്റി പ്രസ്താവന നടത്തുമെന്ന് അദ്ദേഹം ഡൽഹി വിമാനത്താവ ളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അതിനിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്ന് വിഷയം ചർച്ചചെയ്തതായും റിപ്പോർട്ടുണ്ട് അക്ബർ പ്രധാനമന്ത്രിയെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്

എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ശബരിമല വിഷയത്തിൽ തന്ത്രി കുടുംബവുമായും പന്തളം കൊട്ടാരവുമായും മറ്റന്നാൾ ചർച്ച നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ

സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന ശുഭാപ്തി വിശ്വാസം ബോർഡിനു ണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

അയ്യപ്പ സേവാസംഘമടക്കം സംഘടനകളുമായും ദേവസ്വം ബോർഡ് ചർച്ചാ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ സി

ശബരിമലയെ സംരക്ഷിക്കാൻ ബി

പിയിലെ അവസാന പ്രവർത്തകന്റെയും ഒടുവിലെ തുള്ളി രക്തം വരെ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരം ആലങ്കോട്ട് എൻഡിഎ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് രാവിലെ തുടക്കം കുറിച്ച് സംസാരിക്കുക യായിരുന്നു ശ്രീധരൻപിള്ള

നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാത്ര സമാപിക്കും തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ടെന്ന് തന്ത്രി കണ്ഠരര് മോഹനരര് വ്യക്തമാക്കി കോടതി വിധി വന്നപ്പോൾ ഗവൺമെന്റും ദേവസ്വം ബോർഡും സമവായ ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു കന്നിമാസം തന്നെ മല ചവിട്ടാനാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പിന് യോഗ്യത നേടിയവരുടെ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു

യാത്രയ്ക്ക് മന്ത്രിമാർക്ക് കേന്ദ്രാനുമതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെ ന്നും അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് മന്ത്രിമാർ നടത്തുന്ന വിദേശയാത്ര സംഭാവന പിരിക്കാനല്ലെന്ന് മന്ത്രി വി

പ്രവാസികളുടെ സഹകരണം ഉറപ്പുവരുത്താനാണ് യാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമയിലെ വനിതാകൂട്ടായ്മ ഉന്നയിച്ചു ആരോപണ ങ്ങൾ താരസംഘടന അമ്മ ഗൌരവമായി പരിശോധിക്ക ണമെന്ന് മന്ത്രി എ

വനിതാകൂട്ടായ്മയ്ക്ക് അമ്മയുടെ പ്രസിഡണ്ട് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ആവശ്യമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ തയ്യാറാണെന്നും മന്ത്രി വെളിപ്പെടുത്തി

ശശി എം

എ ക്കെതിരായ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് പാർട്ടി തീരുമാനിച്ച സമയത്ത് ഉണ്ടാകുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയോട് വിശ്വാസം ഉള്ളതുകൊണ്ടാ ണ് പെൺകുട്ടി പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തി ലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും എ

ബാലൻ വ്യക്തമാക്കി സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്തന്നെ വനിതാകൂട്ടായ്മ പോരാട്ടം തുടരണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അഭിപ്രായപ്പെട്ടു ഗവൺമെന്റ് ഇരകൾക്കൊപ്പമാണെന്നും എല്ലാ പിന്തുണയും അവർക്ക് നൽകുമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു സൈബർ ആക്രമണത്തെ വനിതാ താരങ്ങൾ ഭയപ്പെടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കാസർകോട് നീലേശ്വരത്ത് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി നിർമ്മാണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗി ലൂടെ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് ഉപ്പുവെളളം തടയാനും ജലസേചന ത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്ക്കരിച്ചത് ഇപ്പോൾ കുടിവെളള ജലസേചന ഗതാഗത സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് നീലേശ്വരം നഗരസഭയെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും റെഗുലേറ്റർ കം ബ്രിഡ്ജ് ബന്ധിപ്പിക്കും

സാധാരണക്കാരന് കോടതികളിലെ വിശ്വാസം ശക്തിപ്പെടുത്താൻ ഇതാവശ്യമാണെന്ന് അദ്ദേഹം അലഹബാദിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതി രൂപീകരിക്കണമെന്നും അത്തരം കേസുകളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു

രാജ്യത്തെ സ്പോർട്സ് വികസനത്തിന് പാരിസ്ഥിതി ക അടിസ്ഥാനഘടന രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു ഝാർഖണ്ഡിൽ ഖേൽഗാൻ സ്പോർട്സ് പ്രമോഷൻ സൊസൈറ്റി അക്കാദമി അംഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

ഇന്റർനെറ്റ് ബാങ്കിങ് സേവനം ഉപയോഗിക്കുന്നവർ മൊബൈൽ നമ്പർ അക്കൌണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് എസ്

എല്ലാ എസ്

ഐ വ്യക്തമാക്കി

ജീവനക്കാരുടെ അപര്യാപ്തതയിൽ പൊറുതിമുട്ടുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ പരിഹരിക്കണ മെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രിയ്ക്ക് കത്ത് നൽകുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു വഴിയരികിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ എൻഫോഴ് സ്മെന്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താ ൻ തീരുമാനമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് നടപ്പാക്കുന്ന പദ്ധതി വിലയിരുത്തിയ ശേഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം വാഹനങ്ങളി ലെത്തി റോഡിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സി സി ടി

ഇവരെക്കുറിച്ച് വിവരം പോലീസിനും തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്കും കൈമാറും മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി നൈജീരിയൻ സ്വദേശിയെ മഞ്ചേരി പൊലീസ് അറസ്റ്റ് ചെയ്തു

ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പ്രഗത്ഭ സംഗീതജ്ഞരുടെ കച്ചേരികളും നഗരത്തിന്റെ രാവുകളെ സംഗീതമയമാക്കുകയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നു

എസ്

എം

അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളുടെ പങ്ക് വൃക്തമായ സാഹചര്യത്തിലാണ് കസ്റ്റംസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയവയുടെ സഹായം തേടിയത് കൂടുതൽ അമ്പേഷണ ങ്ങൾക്ക് എക്സൈസിന്റെ പ്രത്യേക സംഘം ഇന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു ദസറയോടനുബന്ധിച്ച് മൈസൂരുവിലേയ്ക്ക് അന്യസംസ്ഥാന ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് കർണാടക ഗവൺമെന്റ് പ്രവേശന നികുതി ഒഴിവാക്കി

ഒഡിഷ ആന്ധ്ര സംസ്ഥാനങ്ങളിൽ തിത്ലി ചുഴലിക്കാറ്റിൽ തകർന്ന അന്തർ സംസ്ഥാന വൈദ്യുതി ലൈനുകളിലെ തകരാർ പരിഹരിക്കാത്തതാണ് നിയന്ത്രണത്തിന് കാരണം

ദക്ഷിണ റെയിൽവെയുടെ എല്ലാ ട്രെയിനുകളിലും ജൈവ ശൌച്യാലയങ്ങൾ സ്ഥാപിക്കുമെന്ന് ദക്ഷിണ റെയിൽവെ മാനേജർ അറിയിച്ചു

മാവേലി എക്സ്പ്രസ് കേരള എക്സ്പ്രസ് ട്രെയിനുകൾ മറ്റന്നാൾ മുതൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് യാത്ര പുറപ്പെടും

പരവൂർ സ്വദേശി പ്രിൻസിനെയാണ് പാരിപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു